ജമ്മുകശ്മീരിൽ തദ്ദേശ സ്വയംഭരണസ്ഥാപനങ്ങളിലേക്കുള്ള മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് സമാധാനപരം

നഷ്ടം ലോകബാങ്ക് കണക്കാക്കിയതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളോടെ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമെന്നാണ് സൂചന

ഗുജറാത്തിൽ നിന്നുള്ള നാവികരാണ് കുടുങ്ങിയിരുന്നത്

ഗുജറാത്ത് ഗവണ്മെന്റിന്റെയും കേന്ദ്രഗവണ്മെന്റിന്റെയും നിർദ്ദേശപ്രകാരമാണ് നാവികരെ സുരക്ഷിതസ്ഥാനത്തേക്ക് മാറ്റിയത്

പൊലീസ് അന്വേഷണം നടത്തുന്നു

നഗരത്തിലെ സിന്ധി ക്യാമ്പ് പ്രദേശത്തും വൈറസ്ബാധ ഉണ്ടായിട്ടുണ്ട്

ജയ്പൂരിന് പുറത്തുള്ള ഗർഭിണികൾ വൈറസ് ബാധിത പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്

ഏറ്റവും കൂടുതൽ വോട്ട് നേടിയാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പറഞ്ഞു

ഏഷ്യ പസഫിക് വിഭാഗത്തിൽ മൂന്ന് വർഷത്തേക്കാണ് ഇന്ത്യ തെരഞ്ഞെടുക്കപ്പെട്ടത്

കുടുംബങ്ങളുടെ ഉപജീവന മാർഗങ്ങളായിരുന്നവയുടെ നഷ്ടവും വലിയൊരു തുകയുടേതാണ് വിശദമായ റിപ്പോർട്ടുകൾ വരാനുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച തുക നഷ്ടത്തിന് സമമായ തുകയല്ല

കൂടുതൽ വിവരങ്ങളുമായി കവിത

വേഗത്തിലും ഉപരാഷ്ട്രപതി പക്ഷപാതമല്ലാത്തതുമായ നീതി ഉറിപ്പാക്കുക വഴി ജനാധിപത്യ സംവിധാനത്തെ ഊട്ടി ഉറപ്പിക്കാൻ കോടതികൾക്ക് കഴിയും സൈബർ കുറ്റങ്ങൾ നീത്വൂനിറ്റ്യൂ വൃവസ്ഥയ്ക്ക് പുതിയ മാനം നല്കിയിട്ടുണ്ട് സ്സൈബ്ർ കുറ്റകൃതൃങ്ങൾക്ക് അതിന്റെ സങ്കീർണതകളുണ്ട് ഭീഷണി കോടതികൾ തിരിച്ചറിയുന്നുണ്ടെന്ന് കരുതുന്നുവെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു ഇത് നേരിടാൻ കോടതികൾ സജ്ജമായിരിക്കണം കെട്ടിക്കിടക്കുന്ന കേസുകൾ തീർപ്പാക്കാൻ നടപടിയുണ്ടാകണം ലോക് അദാലത്തുകൾ ഗ്രാമന്യായാലയങ്ങൾ അതിവേഗ കോടതികൾ എന്നിവ കേസുകൾ വേഗം തീർപ്പാക്കാൻ ഉപയോഗപ്പെടുത്തണം നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കാൻ വിവര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തണമെന്നും ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു

തെരഞ്ഞെടുപ്പ് കുറ്റങ്ങൾക്കായി പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്നും കേസുകൾ തീർപ്പാക്കാൻ സമയ വ്യവസ്ഥ ഉണ്ടാവണമെന്നും അദ്ദേഹം പറഞ്ഞു

സുപ്രീംകോടതി വിധി ആചാരങ്ങളും വിശ്വാസങ്ങളും കണക്കിലെടുത്തല്ലെന്ന് ആരോപിച്ചാണ് ഹർജി നൽകിയിരിക്കുന്നത് നേരത്തെ എൻ എസ്

എറണാകുളത്ത് വ്യാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിഷേധം സംഘടനയ്ക്കെതിരെ അല്ല ന്ദീത്തി നിഷേധത്തിന് എതിരെയാണ് അതിനാൽ പോരാട്ടം തുട്ടരൂമ്മെന്നും അംഗങ്ങൾ അറിയിച്ചു

പുരുഷന്മാരുടെ എസ്

പുരുഷ സിംഗിൾസ് എസ്

ഇയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല

അതേസമയം വടക്കൻ കാശ്മീരിലെ സോപ്പോര്യിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഒരു ്പ്ടോലീസുകാരൻ വീരമൃത്യുവരിച്ചു

മരിച്ചവരിൽ മൂന്നുപേർ നേപ്പാൾ സ്വദേശികളാണ്